സംസ്ഥാനത്ത് പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ ബാധിച്ചതായി മുഖ്യമന്ത്രി

കേരളത്തിലേക്ക് കൊണ്ടു വരുന്ന മത്സൃങ്ങളിൽ ഫോർമാലിൻ കണ്ടെത്തിയ സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാവുമെന്ന് ആരോഗൃമന്ത്രി

പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കി

കോട്ടയം മുക്കൂട്ടുതറ സ്വദേശിനി ജസ്നയെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി തള്ളി

ഫിഫ ലോക കപ്പ് ഫുട്ബോളിൽ ഇന്ന് നാല് മത്സരങ്ങൾ പോലീസ് സേന താക്കീത് സംസ്ഥാനത്ത് അടുത്തിടെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ ബാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ഉന്നതതലയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കേസ് അന്വേഷണങ്ങൾക്ക് മേലുദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഉയർന്ന ജനാധിപത്യമൂലൃങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിൽ പോലീസ് അതിനൊത്ത് മാത്രമെ പ്രവർത്തിക്കാവൂ എന്നും ശ്രീ പിണറായി വിജയൻ എടുത്തു പറഞ്ഞു

സംസ്ഥാന കാർഷിക വില നിർണ്ണയ ബോർഡും കൃഷിവകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കർഷകരുടെ ജീവന സുരക്ഷായ്ക്കായുള്ള അന്താരാഷ്ട്ര കാർഷിക വ്യാപാര സ്വതന്ത്ര വ്യാപാര കരാറുകൾ സംബന്ധിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കൃഷി ഒരു സംസ്ഥാന വിഷയമാണ് അന്താരാഷ്ട്ര കരാറിലേർപ്പെടുമ്പോൾ ബാധിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ സഹായകമാകുമെന്ന് മുഖ്യ്മുന്ത്രി പറഞ്ഞു

ഇതി നായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കുന്നതോടൊപ്പംവിപണികളിലും പരിശോധന നടത്തും എറണാകുളത്തെ സെൻട്ട്ൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ പേപ്പർ സ്ട്രിപ്പ് ഉയോഗിച്ച് പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ഫോർമാലിന്റെ അളവ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ കേസെടുക്കുന്നതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ലാബിലുള്ള വിദഗ്ധ പരിശോധനയിലും ഫോർമാ ലിൻ കണ്ടെത്തിയാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാര മുള്ള പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങുന്നതാണ് പല വാഹനങ്ങ ളിലും എവിടെ നിന്നാണ് ഈ മത്സ്യം കൊണ്ടുവരുന്നതെന്ന് വ്യക്ത മായ രേഖകളില്ലാത്തിനാൽ കൊണ്ടുവരുന്ന ഡ്രൈവർക്കെതിരേയും കേസെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന രാസവസ്തു ക്കൾ കലർത്തിയ മത്സ്യം ചെക്ക്പോസ്റ്റുകളിൽ പിടികൂടി നശിപ്പിക്കു ന്നതിനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ മൂന്നാഴ്ചക്കകം അറിയിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു ചീഫ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ എന്നിവർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീ ഷൻ ജുഡീഷ്യൽ അംഗം പി

കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വൻ തോതിൽ കുറഞ്ഞുവരികയായിരുന്ന മത്തിയുടെ തിരിച്ചുവരവാണ് സമുദ്ര മത്സ്യമേഖലയ്ക്ക് ഉണർവായതെന്ന് പഠനം സൂചിപ്പിക്കുന്നു സംസ്ഥാനത്ത് മത്തിയുടെ ലഭ്യത മുൻ വർഷത്തേക്കാൾ മൂന്ന് മടങ്ങ് വർധിച്ചതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് പിടിച്ച മീനുകളുടെ കണക്ക് ഇന്നാണ് സിഎംഎഫ്ആർ ഐ പുറത്തുവിട്ടത്

രാജ്യത്ത് എവിടെനിന്നും ഈ ആപ്പ് വഴി പാസ്പോർട്ടീസ് അപേക്ഷിക്കാമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു നിലവിൽ സ്ഥിര മേൽവിലാസ പരിധിയിലെ പാസ്പോർട്ട് ഓഫീസ് വഴി മാത്രമേ പാസ്പോർട്ടിന് അപേക്ഷ നൽകാൻ കഴിയുമായിരുന്നുള്ളൂ

വിശദാംശങ്ങളുമായി പ്രസാദ് വോയിസ് ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കുന്നത്

ഇതോടൊപ്പം കേരളത്തിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളേയും ടൂറിസം സ്ഥാപനങ്ങളേയും ഭിന്നശേഷി സൌഹൃദ ടൂറിസം കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും നാളെ തുടക്കമാകും

ജസ്നയെ അന്യായമായി തട്ടിക്കൊണ്ടുപോയതായി കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഹോദരൻ സമർപ്പിച്ച ഹർജി തള്ളിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ അന്വേഷണമാണ് നടക്കുന്നുവെന്ന് കോടതി പറഞ്ഞു തുടരന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിനാലും ഹർജിക്ക് നിലനിൽപ്പില്ല

ഒരു കൂട്ടം വനിതാ സാമൂഹ്യ പ്രവർത്തകരാണ് പരാതി നൽകിയത്

മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ ജേക്കബ് മണ്ണാർപ്രായിൽ ബോധവത്ക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു

അന്താരാഷ്ട്ര ലഹരിവിരുദ്ധദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി മീഡിയാ വെൽഫെയർ സൊസൈറ്റി നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം അടിമായിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

മന്ത്രി ടി

രാമകൃഷ്ണനും ഗവൺമെന്റ് ഏജൻസിയായ ഒഡെപെക് പ്രതിനിധി സംഘവും കുവൈറ്റ് ആരോഗ്യമന്ത്രാലയം പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഒഡെപെക് നോർക്ക റൂട്ട്സ് തുടങ്ങിയവ വഴിയായിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുക